മികച്ച പ്രതികരണം

വർദ്ധന നിയന്ത്രണങ്ങ്ൾ കൂടുതൽ ശക്തമാക്കും

ഡോസുകൾ ആവശ്യപ്പെട്ട് കേരളം മുൻ മന്ത്രി കെ ജെ ചാക്കോ അന്തരിച്ചു

ജേതാക്കളായ അർജന്റീനയെ പരാജയപ്പെടുത്തി ഇന്തൃ ഐ

സാമൂഹ്യ പ്രവർത്തകർ ജ്യോതിബ ഫൂലെയുടെ ജന്മവാർഷികത്തിന്റെ ഭാഗമായി ആരംഭിച്ച വാക്സിൻ ഉത്സവ് ഡോ

നിലവിൽ രാജ്യത്ത് കോവിഡ് രൂക്ഷമാവുകയുപ്പ് മ്തുന്നിന്റെ ആവശ്യം ഉയരുകയും ചെയ്ത സാഹചര്യത്തില്ലാണ് കയറ്റുമതി താൽക്കാലികമായി നിർത്തിയത് അമേരിക്കൻ മരുന്ന് കമ്പനിയായ ഗിലഡ് സയൻസസിന്റെ സ്വമേധയായുള്ള ലൈസൻസിങ് കരാർ പ്രകാരം ഇന്ത്യയിൽ ഏഴ് കമ്പനികളാണ് റംഡെസിവിർ ഇൻജക്ഷൻ ഉത്പാദിപ്പിക്കുന്നത് കോവിഡ് സംസ്ഥാനം രാജ്യത്ത് കോവിഡ് വ്യാപനം ക്രമാതീതമായി ഉയരുന്നതിനിടെ കേരളത്തിലും പ്രതിദിന രോഗികളുടെ എണ്ണത്തിൽ വൻ വർദ്ധന

ജില്ലയിലെ ബീച്ച് ഡാം തുടങ്ങിയ അനിയന്ത്രിത വിനോദ സഞ്ചാര മേഖലകളിൽ വൈകുന്നേരം അഞ്ച് മണിക്ക് ശേഷം പ്രവേശനം നിരോധിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു

ആരോഗ്യവകുപ്പ് ഫെഡ്റ്റൽ ബാങ്കിന്റെ സഹായത്തോടെയാണ് സഞ്ചുരിക്കുന്ന വാക്സിൻ പരിപാടി ആവിഷ്ക്കരിച്ചത്

കെ ശൈലജ സംസ്ഥാനത്ത് കോവിഡ് വാക്സിൻ ക്ഷാമം ഗുരുതരമായ പ്രശ്നമാകുമെന്ന് ആരോഗൃമന്ത്രി കെ

വൻതോതിൽ വാക്സിൻ കുത്തിവയ്പ്പ് തുടങ്ങിയതോടെ ലഭ്യതക്കുറവുണ്ടെന്നും പല മേഖലയിലും രണ്ട് ദിവസത്തേക്കുള്ള കരുതൽ ശേഖരം മാത്രമാണുള്ളത് കൂടുതൽ വാക്സിൻ എത്തിക്കാനായി കേന്ദ്രത്തിന് സംസ്ഥാനം കത്തയച്ചിട്ടുണ്ടെന്നും ശ്രീമതി ശൈലജി പറഞ്ഞു വാക്സിൻ തീരെ ലഭിക്കുന്നില്ല എന്ന ആക്ഷേപം കേരളത്തിന് ഇല്ല എല്ലാവരുടേയും ജീവൻ വിലപ്പെട്ടതായതിനാൽ വാക്സിൻ കയറ്റിഅയക്കാൻ പാടില്ലെന്ന് പറയാനാവില്ല അതേസമയം നമുക്ക് വാക്സിൻ ലഭ്യത ഉറപ്പാക്കിയിട്ട് വേണം വിദേശത്തേക്ക് കയറ്റി അയക്കേണ്ടതെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു നിലവിലെ കോവിഡ് സാഹചരൃത്തിൽ തൃശൂർ പൂരത്തിന് വലിയ ആൾക്കൂട്ടം ഉണ്ടാകുന്നത് അപകടകരമാണ് ആറ്റുകാൽ പൊങ്കാല നടത്തിയതു പോലെ പ്രതീകാത്മകമായി തൃശൂർപൂരം നടത്താനാകുമോ എന്ന് ആലോചിക്കണമെന്നും ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡ് ചർച്ചയിലൂടെ തീരുമാനം എടുക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ജനിതകമാറ്റം വന്ന വൈറസ് കൂടുതലായി സംസ്ഥാനത്ത് ഇല്ലെന്ന് വൃക്തമാക്കിയ മന്ത്രി നിലവിലെ സ്ഥിതിയിൽ മുന്നോട്ട് പോയാൽ ദിവസവും പതിനായിരം രോഗികളെന്ന നിരക്കിലേക്ക് എത്തിയേക്കുമെന്നും പറഞ്ഞു

നീതു ഇൻട്രോ കോവിഡ് കാലം പൊതുസമൂഹത്തിൽ ഉയർത്തുന്ന മാനസിക പിരിമുറുക്കം മറികടക്കാൻ ചിട്ടയായ മാനസികാരോഗൃ പരിപാലനത്തിലൂടെ കഴിയുമെന്ന് കരുനാ്ഗ്ലപ്പള്ളി താലൂക്ക് ആശുപത്രിയിലെ മനോരോഗ വിദഗ്ദ്ധൂ ഡോ നീതു സുരേഷ് ബാബു ആക്ടാ്ശവാണി വാർത്തകളോട്

മുഖ്യമന്ത്രിക്ക് പ്രകടമായ കോവിഡ് രോഗലക്ഷണങ്ങളില്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു

ഗുജറാത്തിലും മധ്യപ്രദേശിലും പുതുതായി അയ്യായിരത്തിലേറെ പേർക്ക് വീതം കോവിഡ് സ്ഥിരീകരിച്ചു

പുണൃം പൂങ്കാവനം വോളന്റിയർമാർ അയ്യപ്പസേവാസംഘം വാളണ്ടിയർമാർ ദേവസ്വം ബോർഡ് ജീവനക്കാർ തുടങ്ങിയവർ ശുചീകരണത്തിൽ പങ്കെടുത്തു

റിപ്പോർട്ട് നിയമപരമല്ലെന്നും പരാതിയിൽ ലോകായുക്ത അന്വേഷണം നടത്തിയില്ലെന്നും പരാതിക്കാരന്റെ വാദങ്ങളാണ് റിപ്പോർട്ടായി മാറിയതെന്നും മന്ത്രി ഹർജിയിൽ പറഞ്ഞു ഹർജി നാളെ പരിഗണിച്ചേക്കും

എം ഷാജി എം എൽ

വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദ്ദിച്ചെന്ന് ചൂണ്ടിക്കാട്ടി നേരത്തെ ഒരു അഭിഭാഷകൻ നൽകീയ ഹർജി നിലവിൽ കോടതിയുടെ പരിഗണനയിലാണ് ഇതിൽ പ്രാഥമിക അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ വിജിലൻസിനോട് കോടതി ആവശ്യപ്പെട്ടിരുന്നു വേനൽമഴ ഇൻട്രോ സംസ്ഥാനത്ത് അടുത്ത വ്യാഴാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ വേനൽ മഴ തുടരുമെന്ന് കേന്ദ്രകാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ്

ബുധനാഴ്ച ഇടുക്കി വയനാട് ജില്ലകൾക്കും വ്യാഴാഴ്ച ഇടുക്കി മലപ്പുറം വയനാട് ജില്ലകളിലും ജാഗ്രതാ നിർദേശമുണ്ട്

കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ് മീൻപിടുത്തതിന് തടസമില്ല കഴിഞ്ഞ ദിവസങ്ങളിലുണ്ട്റ്റിക്മ്ഴയിലും കാറ്റിലും വിവിധയിടങ്ങളിൽ വ്യാപകമായ ക്രാശ്ശന്ഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്

ജെ ചാക്കോ ചങ്ങനാശേരിയിൽ അന്തരിച്ചു

എച്ച് മുഹമ്മദ് കോയ മന്ത്രിസഭയിൽ റവന്യൂ ഗതാഗത വകുപ്പുകൾ കൈകാര്യം ചെയ്തു

ചങ്ങനാശേരി നഗരസഭാ ചെയർമാനുമായിരുന്നു സംസ്ക്കാരം ബുധനാഴ്ച ചങ്ങനാശേരിയിൽ പോറ്റിവളർത്തൽ പദ്ധതി ഇൻട്രോ വിവിധ കാരണങ്ങളാൽ രക്ഷിതാക്കൾക്കൊപ്പം താമസിക്കാനാവാതെ സർക്കാരിതര ശിശുസംരക്ഷണ കേന്ദ്രങ്ങളിൽ കഴിയുന്ന കുട്ടികൾക്കായി അവധിക്കാലത്ത് സ്നേഹക്കൂടൊരുക്കാം

വിശദാംശങ്ങളുമായി ഞങ്ങളുടെ ഇടുക്കി ജില്ലാ പ്രതിനിധി ആന്റണി മുനിയറ

ഒളിമ്പിക് ജേതാക്കളായ അർജന്റീനയെ എതിരില്ലാത്ത മൂന്ന് ഗോളിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്

സ്വർണ്ണവിലയിൽ വർദ്ധന

എൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് പഞ്ചാബ് കിങ്സിനെ നേരിടും സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനായി ഐ

എല്ലിലെ ആദ്യ മത്സരമാണിത്